മഹാരാഷ്ട്ര സർക്കാർ പ്ലാസ്മ ബാങ്കിന് രൂപം നൽകാനൊരുങ്ങി ഡ്കൽഷിയും

ഇന്ത്യയിലും ഇന്ധന വില സ്ഥിരത കൈവരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ

വിശദാംശങ്ങളുമായി ലക്ഷ്മി മോ ്ഹൻ

പുറത്തിറങ്ങുന്നതിനും നിയന്ത്രണമേർപ്പെടുത്തിയിട്ടുണ്ട്

കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഡൽഹിയും തമിഴ്നാടുമാണ് മഹാരാഷ്ട്രയ്ക്കു തൊട്ടുപിന്നിൽ

രോഗശാന്തിക്ക് പ്ലാസ്മ ദാനം ചെയ്യാൻ മുന്നോട്ടു വരണമെന്ന് മുഖ്യമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു

കോവിഡ് മുക്തരായവരോട് പ്ലാസ്മ ദാനം ചെയ്യാൻ ആവശ്യപ്പെടുമെന്നും ശ്രീ കെജ്രിവാൾ പറഞ്ഞു

ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എട്ടു ലക്ഷത്തോളം സംരംഭങ്ങൾക്ക് വിവരലഭ്യത പരിശീലനം കൂടുതൽ പ്രവൃത്തിപരിചയം എന്നിവ ലഭിക്കുന്നതിനൊപ്പം അവയുടെ ഒറ്റുദ്യോഗികവത്കരണത്തിനും പദ്ധതി വഴി തുറക്കുമെന്ന് മന്ത്രി പൂര്യത്തു

രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് പോർട്ടലിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചു രാജ്യരക്ഷാ മന്ത്രാലയത്തിൽ നിന്ന് സുരക്ഷാ അനുമതി തേടുന്നതിന് അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാൻ പോർട്ടൽ സഹായിക്കും

കോവിഡ് മഹാമാരി ഊർജ്ജ വ്യവസായത്തെ പ്രതിസന്ധിയിലാക്കിയതായി മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു

അതേസമയം ഇന്ധന വില ഇന്നും വർധിച്ചു

മലപ്പുറം ജില്ലയിലെ പ്ലൊന്നാനി താലൂക്കിൽ ഇന്ന് വൈകിട്ട് അഞ്ചു മണി മുതൽ ജൂലൈ ആറാം തീയതി അർദ്ധരാത്രി വരെ ട്രിപ്പിൾ ലോക്ഡൌൺ ഏർപ്പെടുത്തിയതായി മുഖ്യമന്ത്രി പ്പെട്ടിട്ടു

അമേരിക്ക യു കെ കാനഡ ഗൾഫ് എന്നീ രാജ്യങ്ങളിൽ നിന്നുളള ഇന്ത്യാക്കാരെയാണ് പ്രധാനമായും ഈ ഘട്ടത്തിൽ നാട്ടിലെത്തിക്കുക

ഡി

എന്നാൽ തീരുമാനം നീതി പൂർവമാണെന്ന് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി ജെ ജോസഫ് വൃക്തമാക്കി

അനന്ത്നാഗ് ജില്ലയിലെ ് ഖുൽചൊഹാർ മേഖലയിൽ പുലർച്ചെയായിരുന്നു ഏറ്റുമുട്ടൽ നൌഷേരാ മേഖലയിലും സേന ജാഗ്രത തുടരുകയാണ് സംശയകരമായ നീക്കം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കാൽസിയാൻ പ്രദേശത്തെ നിയന്ത്രണരേഖയ്ക്കു സമീപം ഇന്നലെ തെരച്ചിൽ നടത്തിയിരുന്നു

അസീം ഗുപ്തയുടെ കുടുംബത്തിന് ഒരു ക്ടോട്ടിരൂപ നൽകുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്പറ്റഞ്ഞു ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാനും ഡോ ഗുപ്തയുടെ ്നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി